അറബിക്കടലിൽ രൂപംകൊണ്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറി കേരളത്തിലെ അഞ്ച് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ട്

കർശന ലോക്ക്ഡൌൺ ഡൽഹിയിലെ കോവിഡ് വ്യാപനം കുറച്ചതായി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രോഗവ്യാപനം കണ്ണുക്കിലെടുത്ത് തമിഴ്നാട്ടിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ

കോവിഡ് മഹാമാരിക്കാലത്ത് കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിൽ പ്രധാൻമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രങ്ങൾക്ക് മുഖൃ പങ്കെന്ന് കേന്ദ്ര സർക്കാർ

ദുർഘട ഘട്ടങ്ങളിൽ പ്രതീക്ഷ കൈവെടിയുന്ന രാജ്യമല്ല ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ കാലത്ത് കർഷകർ നൽകുന്ന സേവനത്തെ അദ്ദേഹം പ്രശംസിച്ചു

എറണാകുളം തിരുവനന്തപുരം മലപ്പു്റം തൃശൂർ ജില്ലകളിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തുന്നത്

തമിഴ്നാട്ടിലുടനീളം അത്യാവശ്യ യാത്രക്കാർക്ക് ഇ പാസ് നിർബന്ധമാക്കിയിട്ടുണ്ട്

ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട എറണാകുളം ജില്ലകളിൽ റെഡ് അലെർട്ട്

ഇന്നും നാളെയും ശക്തമായ മഴ തുടരും

ടൌട്ടേ കേരളത്രീരത്ത് നിന്ന് വടക്കോട്ട് നീങ്ങാനുള്ള സാധ്യതയുണ്ടെങ്കിലും പൂർണ്ഗത പുലർത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു

തിരുവനന്തപുരം മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്

ലോകാരോഗൃ സംഘടന ദേശീയ ദുരന്ത നിവാരണ സേന കേന്ദ്ര സംസ്ഥാന്റു സർക്കാരുകൾ എന്നിവ നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പ്പുലിച്ചാവണം മൃതദേഹം സംസ്ക്കരിക്കേണ്ടത്

കോവിഡ് മരണങ്ങൾ വ്ർദ്ധീക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ശ്മശാനങ്ങൾ നിർമ്മിക്കാനും നിർദ്ദേശമുണ്ട്

നിർദ്ദേശങ്ങൾ നടപ്പിലാക്കി നാലാഴ്ചയ്ക്കുകം റിപ്പോർട്ട് സമർപ്പിക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കമ്മീഷൻ ഉത്തരവിട്ടു

മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് വാക്സിൻ വിതരണം നട്ടത്തേണ്ടതിന്റെ പ്രാധാന്യം ചർച്ചയിൽ ഉയർന്നുവന്നു

നെടുമ്പാശേരി വിമാനത്താവളത്തിൽ സൌമൃയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറും കേന്ദ്ര വിദേശകാരൃ സഹമന്ത്രി വി മുരളീധരൻ ഡൽഹി വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മൃതദേഹം ഏറ്റുവാങ്ങി

ലെബനൻ അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് കടന്ന പ്രക്ഷോഭക്കാർക്കെതിരെ പ്രത്യാക്രമണം നടത്തിയതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി

പാർലമെന്ററി കമ്മിറ്റികൾ വെർചലായി നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയ കത്തിന് മറുപടിയിലാണ് ഇക്കാര്യം വൃക്തമാക്കിയത് പാർലമെന്ററി കമ്മിറ്റികൾ വെർചലായി കൂടുന്നതിന് ഇരുസഭകളിലും റൂൾസ് കമ്മിറ്റിയുടെ അംഗീകാരം ആവശ്യമുണ്ട് ചട്ടങ്ങളിൽ വരുത്തുന്നീട് ഭേദഗതികൾക്ക് അതത് സഭകളുടെ അംഗീകാരം ലഭിക്കണമെന്നുറ്ട് രാജ്യസഭ സെക്രട്ടേറിയറ്റ് ശ്രീ

വീട്ടിൽ കോവിഡ് നിരീക്ഷണത്തിന് ആവശ്യമായ അടിസ്ഥാനസൌകര്യങ്ങൾ ഇല്ലാത്ത രോഗികൾ നിർബന്ധമായും ആശുപത്രികളിലേക്കോ കോവിഡ് കേന്ദ്രങ്ങളിലേക്കോ മാറണമെന്നും അസം മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു

അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് നദാൽ സെമി ഫൈനലിൽ എത്തിയത്